അഞ്ചാം ഘട്ട വോട്ടെടുപ്പ് ആര്യഭിച്ചു

കോവിഡ് വ്യാപനത്തിള്റെ ആശങ്കയിൽ രാജ്യം ന് പ്രതിദിന കോവിധ്ച് രോഗികളുടെ എണ്ണം രണ്ട് ലക്ഷം കടന്നു

ചെന്നൈ സൂപ്പർ കിംഗ്സ് പഞ്ചാബ് കിംഗിസിനെ ആറ് വിക്കറ്റിന് പരാജയപ്പെടുത്തി

കോ്പിഡ് വ്യാപനവും മറ്റ് അനിഷ്ട സംഭവങ്ങളും ഒഴിവാക്കാൻ എല്ലാവിധ സംവിധാനങ്ങളും ഒരുക്കിയിട്ടുണ്ടെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വൃക്തമാക്കി

ഒഡിഷയിലെ പിപ്പലീ നിയമസഭാ മണ്ഡലത്തിലെ ഉപതെരഞ്ഞെടുപ്പ് കോൺഗ്രസ്സ് സ്ഥാനാർത്ഥിയുടെ മരണത്തെ തുടർന്ന് മാറ്റിവച്ചിരുന്നു

കെ ബ്രസീൽ ദക്ഷിണാഫ്രിക്കൻ വകഭേദങ്ങളെയും കണ്ടെത്താൻ ആർ

ചരക്കുലോറികൾ തീവണ്ടികളിൽ കയറ്റിക്കൊണ്ടുപോകുന്ന റെയിൽവേയുടെ പ്രത്യേക സർവ്വീസായ റോ റോയിൽ ക്രയോജനിക് ടാങ്കറുകളിലാവും ദ്രവീകൃത ഓക്സിജൻ കൊണ്ടുപോകുക മഹാരാഷ്ട്ര സർക്കാരിന്റെ അഭ്യർത്ഥനയെ തുടർന്നാണ് തീരുമാനം

ഭാവിക്കായി പുനക്രമീകരിക്കുക എന്ന പ്രമേയത്തെ അടിസ്ഥാനമാക്കി മൂന്ന് ദിവസങ്ങളിലായ്ക്ക് ഫ്ട്ട്ന്ന യോഗത്തിൽ സേനയുടെ കർമ്മശേഷി വർദ്ധിപ്പിക്കുന്നൂത് ലക്ഷ്യമിട്ട് നിരവധി ചർച്ചകൾ നടന്നു യോഗത്തെ രുജ്യർക്ഷാമന്ത്രി രാജ്നാഥ് സിങ് ഇന്നലെ അഭിസംബോധന ചെയ്തു സംയുക്ത സേനാ മേധാവി വ്യോമ നാവിക കരസേനക്ളുടെ തലവന്മാർ വിവിധ വ്യോമസേനാ കമാൻഡുകളുടെ തലവുമ്മാർ ്തുടങ്ങിയവർ പങ്കെടുത്തു

ആദിവാസി മേഖലയിൽ ഉൾപ്പെടുന്ന ദണ്ഡേവാഡ ജില്ലയിൽ നാളെമുതലാവും ലോക്ഡൌൺ നിലവിൽ വരിക

മറ്റ് ഏഴ് ജില്ലകളിലും വ്യാപാര സ്ഥാപനങ്ങളുടെ സമയക്രമീകരണം ഉൾപ്പെടെ കർശന നിയന്ത്രണങ്ങൾ നിശ്ചയിച്ചിട്ടുണ്ട്

ഇതാദ്യമായാണ് തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി ഇത്രയധികം രൂപയുടെ സാമഗ്രികൾ പിടിച്ചെടുക്കുന്നത്

പശ്ചിമബംഗാൾ അസം എന്നിവയാണ് തൊട്ടുപിന്നിൽ

കോഴിക്കോട്ട് എറണാകുളം ജില്ലകളിൽ ആയിരത്തിന് മുകളിൽ കേസുകളാണ് കൂപ്പോർട്ട് ചെയ്തത്

ആറ് മാസങ്ങൾക്ക് ശേഷമാണ് പ്രതീനായിരത്തിന് മുകളിൽ കേസുകൾ സംസ്ഥാനത്ത് റിപ്പോർട്ട് ചെയ്യുന്നത്

ഇന്നലെയും ഇന്നുമായി രണ്ടര ലക്ഷം പേരെ കോവിഡ് പരിശോധനയ്ക്കു വിധേയരാക്കാൻ ലക്ഷ്യമിട്ടുള്ള വ്യാപക പരിശോധനയാണ് സംസ്ഥാനത്ത് പുരോഗമിക്കുന്നത് തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളിൽ സജീവ പങ്കാളിയായവർ പൊതുജനങ്ങളുമായി കൂടുതൽ ഇടപഴകുന്നവർ ട്രാൻസ്പോർട്ട് തൊഴിലാളികൾ ഹോട്ടലുകളിലും മറ്റു സ്ഥാപനങ്ങളിലും ജോലി ചെയ്യുന്നവർ തുടങ്ങി വൃതൃസ്ത മേഖലകളിലുള്ളവരിൽ പരിശോധന നടത്തും ഇതോടൊപ്പം വാക്സിനേഷൻ വ്യാപിപ്പിക്കാനും തീരുമാനമായിട്ടുണ്ട്

നിലവിൽ കാലാവസ്ഥാ വൃതിയാനം മൂലം അപകടം ഉണ്ടാകാൻ സാധ്യതയുള്ള സംസ്ഥാനങ്ങളെയും ജില്ലകളെയും കണ്ടെത്താൻ സഹായിക്കുന്നതാണ് ഈ റിപ്പോർട്ട് കാലാവസ്ഥാ ദുർബല പ്രദേശങ്ങളിൽ ജീവിക്കുന്നവർക്കും അത്തരം പ്രദേശങ്ങളുടെ വികസനത്തിനും റിപ്പോർട്ട് സഹായകരമാകും

ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന കോവിഷീൽഡ് വാക്സിൻ വിവിധ രാജ്യങ്ങളിലേക്ക് വിതരണത്തിനായി കയറ്റുമതി ചെയ്യപ്പെടുന്നുമുണ്ട് അതിനാൽ അമേരിക്കയിൽ നിന്നുള്ള അസംസ്കൃത വസ്തുവിന്റെ കയറ്റുമതി തടയരുതെന്ന് സെറം ചീഫ് എക്സിക്യൂട്ടിവ് ഓഫീസർ അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡനോട് അഭ്യർത്ഥിച്ചു

രാജ്യത്ത് കോവിഡ് രോഗബാധ കുതിച്ചുയരുന്ന സാഹചര്യത്തിലാണ് പരീക്ഷ മാറ്റിയത്